പ എൻസിപി സംസ്ഥാന അധ്യക്ഷനായി ടി

പീതാംബരനെ തെരഞ്ഞെടുത്തു

ശശീന്ദ്രൻ മന്ത്രിയായി തുടരും

മുഹമ്മദ് അനസിനും പി

തുളസിക്കും ജി വി രാജ പുരസ്കാരം ഗവർണർ ഇൻട്രോ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയെ സമീപിച്ച നടപടി ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിൽ താനുമായി കൂടിയാലോചിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഭരണഘടനാപരമായ അവകാശമു എന്നാൽ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ തന്നെ അറിയിച്ചില്ല എല്ലാവരും നിയമത്തിന് കീഴിലാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

ജനങ്ങൾക്ക് എല്ലാവിധ വേ സംരക്ഷണവും ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ പ്രവർത്തനവും സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം വാർഡ് വിഭജനം ചർച്ച തദ്ദേശവാർഡുകളുടെ പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പുറപ്പെടുവിച്ചു ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരുമായി ചർച്ച നടത്തും

കോഴിക്കോട് ഐ

എമിൽ നടക്കുന്ന അന്തർ ദേശീയ കോൺക്ലേവും സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സമർപ്പണവും വീഡിയോ കോൺഫ്രൻസിലൂടെ നിർവഹിക്കുകയായിരന്നു പ്രധാനമന്ത്രി പാരമ്പര്യത്തെ ഉൾക്കൊ ് വളർച്ച നേടാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും സൌരോർജത്തിലൂടെ എനർജിയിലൂടെ എനർജി സേവിംഗും യോഗയിലൂടെ ജീവിത ശൈലി രൂപപ്പെടുത്താനും പരിശ്രമിച്ചു കൊ ിരിക്കയാണെന്നും പ്രധാനമന്ത്രി ചൂ ിക്കാട്ടി

ആലപ്പുഴ എസ് ഡി വി സെൻറിനറി ഓഡ്കിറ്റോറിയത്തിൽ നടന്ന ജില്ലാ പട്ടയ മേളയുടെ ഉദ്ഘാടനവും പട്ടയ വിതരണപ്പൂടി നിർവഹിക്കുകയായിരുന്നു മന്ത്രി

എ കേസ് കോഴിക്കോട് പന്തീരാങ്കാവ് യു എ

കൊച്ചി എൻ ഐ എ

ഇവരുടെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും

സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ സഹായിച്ച ഇസ്മയിലിനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ തച്ചങ്കരി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

അവിടെ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ പിടികൂടിയത്

പീതാംബരനെ തെരഞ്ഞെടുത്തു ഇന്ന് മുംബൈയിൽ ചേർന്ന എൻസിപി നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊ ത്

എൽഡിഎഫ് ഗവൺമെന്റിലെ എൻസിപിയുടെ മന്ത്രിയായി എ

ശശീന്ദ്രൻ തുടരാനും യോഗം തീരുമാനിച്ചു

എന്നാൽ മരണവാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ര ്ു പ്രതികൾ തിരുത്തൽ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചു ക്ടോടതി ഹർജി തള്ളിയതോടെ പ്രതികളിൽ ഒരാൾ ദയാഹർജിയുമായി രാഷ്ട്രപതിരിയു സമീപിച്ചിരിക്കുകയാണ്

ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് എന്നീ പേരുകൾ പൊതുജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉ ാകുന്നുവെന്ന് മനസ്സി ലാക്കിയതിനെ തുടർന്നാണ് നടപടി

എസ് പരീക്ഷ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസ് പരീക്ഷയ്ക്കായി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവധിയെടുത്താൽ നടപടി ഉ ാകുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പൊതുഭരണവകുപ്പ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ ശുപാർശയിലാണ് ഇക്കാര്യം പറയുന്നത് ഗവൺമെന്റ് ജോലിയിൽ ഇരുന്നുകൊ ് മറ്റൊരു ജോലിക്ക് വേ ി പഠിച്ച് പരീക്ഷ എഴുതുന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് പൊതുഭരണവകുപ്പിന്റെ ക ത്തൽ സെക്രട്ടറിയേറ്റിൽ മാത്രം അൻപത് പേരാണ് കെ

എസ് പരീക്ഷ എഴുതാനായി ഇതുവരെ അവധി നൽകിയിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടു ാക്കുമെന്ന് പൊതുഭരണവകുപ്പ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയ ശുപാർശയിൽ പറയുന്നു

പുരുഷൻമാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഈ മേഖലയില്ക്കുള്ള സ്ത്രീകളുടെ ചുവടുവെയ്പ്പാണ് ഇത് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ ടി

ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരന്റെ റിപ്പോർട്ട്

സരസ്വതിയമ്മ എന്ന മഹിളാലയം ചേച്ചിയുടെ സംസ്കാരം തിരുവനന്തപുരം ശാന്തികവാടത്തിൽ നടന്നു ആകാശവാണി അങ്കണത്തിൽ എത്തിച്ചു ഭൌതിക ശരീരത്തിൽ നിലയാംഗങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു

രാജാ അവാർഡിന് പുരുഷ വിഭാഗത്തിൽ അത്ലറ്റിക്സ് താരം മുഹമ്മദ് അനസും വനിതാ വിഭാഗത്തിൽ ബാഡ്മിന്റൺ താരം പി സി തുളസിയും അർഹരായി വിശദാംശങ്ങളുമായി സോഫിയ ഡാനിയേൽ

ഏഷ്യൻ ഗെയിംസിലെ വെങ്ക ല മെഡൽ നേട്ടവും യൂബർ കപ്പിലെ നേട്ടവുമാണ് പി

തുളസിയെ പുരസ്കാ രത്തിന് അർഹയാക്കിയത് കായികവകുപ്പ് മന്ത്രി ഇ

ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലോങ്ജംപ് പരിശീലകൻ ടി

മികച്ച കാ്യിക പരിശീലകനുള്ള അവാർ ഡ് ഫുട്ബോൾ പരിശീലകൻ സതീവൻ ബാലന്റ് ലഭ്രീച്ചു

ധോണി ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ അടുത്ത ഒരു വർഷത്തേയ്ക്കുള്ള ബിസിസിഐയുടെ കരാർ പട്ടികയിൽ നിന്ന് മുൻ നായകൻ എം

സംസ്ഥാനത്ത് ഇന്ധനവില കുറഞ്ഞു